ഒരു സൈനികന് വീരമൃത്യു

ഭരണഘടനാ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും നമ്മുടെ രാജ്യത്ത് ശാന്തിയും പുരോഗതിയും സമൃദ്ധിയും ഉറപ്പാക്കാമെന്നും പ്രധാ നമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻകി ബാതിന്റെ അൻപതാം പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങ ളോട് സംവദിക്കുകയായിരുന്നു നരേന്ദ്രമോദി മൻകി ബാത് ഈ യാത്ര യുടെ അമ്പത് സോപാനങ്ങൾ കടക്കുകയാണെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു മൻകി ബാതിന്റെ സുവർണ്ണ ജൂബിലി സോപാനമാണിതെന്നു പറയാം മൻകി ബാത് കാരണം റേഡിയോ കൂടുതൽ ജനപ്രിയമാകുന്നു എന്നു കാണുന്നതിൽ തനിക്കു സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി അറി യിച്ചു ബിജെപിയുടെ ഭാരവാഹിയായിരുന്ന കാലത്ത് ഹിമാചലിലെ പർവ്വത പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു ചായക്കടയിൽ കയറിയപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽബിഹാരി വാജ്പേയി നടത്തിയ ആണവ പരീക്ഷണത്തെക്കുറിച്ച് റേഡിയോയിൽ പ്രക്ഷേപണം ഉണ്ടായി രുന്നു ചായക്കടക്കാരനാണ് തന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതെന്നും അന്നാണ് റേഡിയോയുടെ പ്രധാന്യം തിരിച്ചറിഞ്ഞതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റേഡിയോ ജനമനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അന്നെ നിക്കുമനസ്സിലായെന്നും നരേന്ദ്രമോദി അറിയിച്ചു റേഡിയോയ്ക്ക് വലിയ ശക്തിയുണ്ട് വാർത്തകൾ എത്തിച്ചേരുന്നതും അതിന്റെ ആഴത്തിലെ സ്വാധീനവും നോക്കിയാൽ റേഡിയോയ്ക്ക് തുല്ല്യ മായി മറ്റൊന്നുമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതാണ് പ്രധാനമന്ത്രിയായ പ്പോൾ ഏറ്റവും ശക്തമായ മാധ്യമത്തിലേക്ക് തന്റെ ശ്രദ്ധ തിരിയാൻ കാരണമായതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൻകി ബാത് കാരണം റേഡിയോ കൂടുതൽ ജനപ്രിയമാകുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സത്യം പറഞ്ഞാൽ മൻകീ ബാതിൽ ശബ്ദം തന്റേ താണെങ്കിലും ഉദാഹരണങ്ങളും വികാരങ്ങളും അതിലെ ഭാവങ്ങളും തന്റെ നാട്ടിലെ ജനങ്ങളുടേതു തന്നെയാണെന്ന് മോദി അറിയിച്ചു മൻകി ബാതിൽ ഉൾപ്പെടുത്താനാകാതിരുന്ന കത്തുകളിലെ നിർദ്ദേശങ്ങൾ ബന്ധ പ്പെട്ട വകുപ്പുകളിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നത്തെ യുവാക്കളുടെ വൈശിഷ്ടൃം അവർക്കു വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നതാണ് ഏതെങ്കിലും കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ച് പിന്നാലെ കൂടുകയും ചെയ്യും

മൻകി ബാതിലൂടെ യുവാക്കളുടെ ബുദ്ധിമുട്ടുക ളെയും അവരുടെ കാര്യങ്ങളെയും കൂടുതൽ കൂടുതൽ ബന്ധപ്പെടുത്താ നാണ് ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദി അറിയിച്ചു പത്ത് ഇന്ത്യക്കാരിൽ ഏഴുപേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻകി ബാത് പരിപാടി ശ്രവിക്കുന്നതായി ആകാശവാണി നടത്തിയ പഠ നത്തിൽ കണ്ടെത്തി

ശ്രോതാക്കളെ ഏറ്റവുംകൂടു തൽ ആകർഷിച്ചത് ശുചിത്വത്തിന് പ്രധാനമന്ത്രി നൽകുന്ന പ്രാധാന്യമാ ണ് മറ്റുവിഷയങ്ങളിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ രണ്ടും യോഗ മൂന്നും സ്ഥാനങ്ങളിൽ എത്തി

കാസർകോഡ് ഉപ്പിനടുക്കയിൽ മെഡിക്കൽകോ ളജ് ആശുപത്രി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായി രുന്നു മുഖ്യമന്ത്രി സാധാരണക്കാരൻ ആദ്യം ചികിത്സ തേടിയെത്തുന്ന പ്രാഥമികാരോഗ്യകേന്ദ്രങ്ങളുടെ ആധുനികവൽക്കരണം എത്രയുംവേഗം പുരോഗമിക്കേണ്ടതുണ്ടെന്നും ആശുപത്രികളെ രോഗീ സൌഹൃദമാക്കു കയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയം സൃഷ്ടിച്ച സാമ്പ ത്തിക പ്രതിസന്ധികൾക്കിടയിലും ജില്ലയിലെ ആരോഗൃമേഖലയിൽ വിട്ടു വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉച്ചകഴിഞ്ഞ് കരിന്തളത്ത് പുതുതായി ആരംഭിച്ച ആർട്സ് ഏന്റ് സയൻസ് കോളജിന്റെ ഉദ്ഘാട നവും മുഖ്യമന്ത്രി നിർവ്വഹിക്കും

ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു കപ്രാൻപ്രദേശത്തെ ഹിപുര ബദാഗുണ്ട് മേഖലയിലാണ് സൈന്യവും ഭീകരവാദികളും ഏറ്റുമുട്ടിയത് പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിപ്പു ണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന്പ്രദേശം വളഞ്ഞ് സംയുക്ത ഓപ്പ റേഷൻ സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിവെക്കുകയാ യിരുന്നുവെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ശ്രീനഗറിൽ അറി യിച്ചു ഏറ്റുമുട്ടൽ തുടരുകയാണ്

വെള്ളിയാഴ്ച അനന്ത് നാഗിൽ ആറു ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ഓഫീസ് മാർച്ചിനിടെ പൊലീസ് ഉദ്യോഗസ്ഥരെ ഭീഷ ണിപ്പെടുത്തിയ കേസിൽ പ്രൊഡക്ഷൻ വാറണ്ട് നിലനിൽക്കുന്ന സാഹ ചര്യത്തിലാണിത് ശബരിമലയിൽ പുലർച്ചെമുതൽ അനുഭവപ്പെടുന്ന തീർത്ഥാടനതിരക്ക് തുടരുകയാണ്

സന്നിധാ നത്ത് സുരക്ഷാചുമതലയുള്ള ഐ

വിജയ് സാഖറെ സുരക്ഷാ ക്രമീ കരണങ്ങൾ വിലയിരുത്തി തീർത്ഥാടകർക്ക് ഭയമില്ലാതെ സുഗമമായി ദർശനം നടത്താൻ എല്ലാ സജ്ജീകരണങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ സുരേന്ദ്രനെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ പൊലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മറ്റന്നാൾ ബി ജെ പി മാർച്ച് നട ത്തുമെന്ന് ജില്ലാ പ്രസിഡണ്ട് പി സത്യപ്രകാശ് അറിയിച്ചു ശബരിമല യുവതീപ്രവേശനത്തിൽ താൻ വിശ്വാസികൾക്കൊപ്പമാ ണെന്ന് മുൻവിജിലൻസ് ഡയറക്ടർ ജേക്കബ്തോമസ് പറഞ്ഞു അവി ശ്വാസികൾ എന്നൊരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് യുവതികൾ കാത്തിരിക്കണമെന്നും റെഡി ടു വെയ്റ്റ് കാമ്പയിൻ സ്വാഗതം ചെയ്യുന്നു വെന്നും അദ്ദേഹം പമ്പയിൽ പറഞ്ഞു മന്ത്രി മാത്യു ടി തോമസ് നാളെ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകും

പകരം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ

പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ട്

തിരുവനന്ത പുരത്ത് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണമില്ലെന്ന് മന്ത്രി ഡോ

ട്രഷറികളിൽ പണം വിതരണം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന പ്രചാരണം വ്യാജമാണെന്ന് മന്ത്രി തിരു വനന്തപുരത്ത് പറഞ്ഞു ഇത്തരം പരാതി ഉയരുന്ന ട്രഷറികളിൽ പരിശോധന നടത്തി പരിഹാരം കണ്ടെത്താനും ഡയറക്ടറെ ചുമതലപ്പെ ടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കായിരുന്നു ജയം രണ്ടാം മത്സരം മഴമൂലം ഉപേക്ഷിച്ചു പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്

ആന്റിഗ്വെയിൽ ഇംഗ്ലണ്ടിനെ എട്ടുവിക്കറ്റിന് തകർത്താണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത് ഇത് നാലാം തവണയാണ് ഓസ്ട്രേലിയ വനിതാലോകകപ്പ് ക്രിക്കറ്റിൽ ചാമ്പ്യൻമാരാകുന്നത് കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്രമേളയിലും സാമൂഹ്യ ശാസ്ത്രം ഐടി മേളകളിലും മല പ്പുറം ജില്ല മുന്നിലെത്തി ഗണിതശാസ്ത്രമേളയിൽ കോഴിക്കോടാണ് മുന്നിൽ

മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും

മേള ബുധനാഴ്ച സമാപിക്കും അന്തരിച്ച കന്നട നടനും മുൻകേന്ദ്രമന്ത്രിയുമായ എം എച്ച് അംബ രീഷിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ബംഗളൂരുവിലെ ശ്രീകണ്ഠീ രവ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിനു വെച്ച അംബരീഷിന്റെ ഭൌതി ട കദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരമർപ്പിക്കാ നെത്തി അംബരീഷിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനു ശോചിച്ചു

ഷാജി വിഷയത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും തന്റെ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പൊന്നാനിയിൽ പറഞ്ഞു ജലീൽ വിഷയം പ്രതിപക്ഷത്തിന് സഭയിൽ ഉന്നയിക്കാ മെന്നും കോടതി അയോഗൃത കല്പിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കെ

ഷാജിയെ നിയമസഭാ നടപടികളിൽനിന്ന് മാറ്റി നിർത്തുന്നതെന്നും സ്പീക്കർ അറിയിച്ചു എരുമേലി പേട്ടതുള്ളലിന് മുന്നോടിയായി അമ്പലപ്പുഴ അയ്യപ്പഭക്ത സംഘം ആഴിപൂജകൾ തുടങ്ങി

വർഗീസ് കുര്യന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി മിൽമയുടെ മലബാർ മേഖല ഡയറി പ്പാന്റുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നു കോഴിക്കോട് കുന്ദമംഗലം കാഞ്ഞങ്ങാട് കല്പറ്റ ഡയറികളിലാണ് ഇന്ന് മുതൽ ചൊവ്വാഴ്ച്ചവരെ സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്

വർഗീസ് കുര്യന്റെ ജന്മദിനമായ നാളെ ദേശീയ ക്ഷീരദിനമായി ആചരിക്കും പാലക്കാട് ജില്ലയിൽ പ്രളയത്തിൽ കൃഷിയിടങ്ങളിൽ അടിഞ്ഞുകൂടിയ മണ്ണുംമണലും പ്രളയാനന്തര പുനർനിർമാണത്തിന് ഉപയോഗിക്കും